ദേശീയ പ്രാധാന്യമുളള വിഷയങ്ങളിൽ സൃഷ്ടിപരമായ ചർച്ച നടത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രീയ പാർട്ടികളോട് ആവശ്യപ്പെട്ടു

റിസർവ്വ് ബാങ്ക് ഗവർണർ ഊർജ്ജിത് പട്ടേൽ രാജി വച്ചു

പ്രധാനമന്ത്രി നരേന്ദ്രമോദ്ദി പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിനും ് മുന്നോടിയായി വിളിച്ചു ചേർത്ത സർവ്വകക്ഷിയോഗത്തിൽ ്സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിശദാംശങ്ങളുമായി ദീപു

ജനന്മ ലക്ഷ്യമാക്കി ശൈതൃകാല സമ്മേളനം ഫലപ്രദമാക്കാൻ പ്രതിപക്ഷ കക്ഷികൾ ഉത്തരവാദിത്ത ബോധത്തോടെ പെരുമാറണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു സമ്മേളനം സുഗമമാക്കാൻ സഹകരിക്കുമെന്ന് എല്ലാ രാഷ്ട്രീയ കക്ഷി നേതാക്കളും ഉറപ്പു നല്കിയതായി പാർലമെന്ററി കാര്യമന്ത്രി നരേന്ദ്രസിങ് തോമർ പിന്നീട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നാളെ ആരംഭിക്കുന്ന പാർലമെന്റ് സമ്മേളനം അടുത്തമാസം എട്ടു വരെ നീളും

മുസ്ലീം പ്ലിത്ത് പിവാഹ അവകാശ സംരക്ഷണം ഇന്ത്യൻ മെഡിക്കൽ കൌൺസിൽ ഭേദഗതി കമ്പനി ഭേദഗതി എന്നീ ഓർഡിന്റൻസിനു പകരമുള്ള ബില്ലുകൾ അവതരിപ്പിക്കും നേരത്ത്രെ യോഗം അന്തരിച്ച മുൻമന്ത്രി എച്ച്

ന്യൂസ് ഡസ്ക് ആകാശവാണി

രാജ്യസഭയുടെ സമ്മേളനത്തിന് മുന്നോടിയായി ന്യൂഡൽഹിയിൽ വിളിച്ചു ചേർത്ത് യോഗത്തിലാണ് ഉപരാഷ്ട്രപതിയുടെ അഭ്യർത്ഥന ഗവൺമെന്റിനും പ്രതിപക്ഷത്തിനും തങ്ങളുടെ അജണ്ട നടപ്പിലാക്കാൻ അവകാശമുണ്ടെന്നും അത് എന്നാൽ പാർലമെന്റിന്റെ സുഗമായ നടത്തിപ്പ് ഉറപ്പാക്കിക്കൊണ്ടാവണമെന്നും അദ്ദേഹം പറഞ്ഞു നാളെ ആരംഭിക്കുന്ന സഭ നടപടികളിൽ പൂർണമായും സഹകരിക്കുമെന്ന് രാജ്യസഭയിലെ ഭരണ പ്രതിപക്ഷ പാർട്ടികൾ ഉറപ്പു നൽകിയതായി പിന്നീട് പുറത്തിറക്കിയ ഔദ്യോഗിക പത്രക്കുറിപ്പിൽ പറയുന്നു

മധ്യപ്രദേശിൽ വോട്ടെണ്ണൽ പൂർണമായും വീഡിയോയിൽ പകർത്തും

രാംഗാർഹ് മണ്ഡലത്തിൽ ബിഎസ്പി സ്ഥാനാർത്ഥിയുടെ മരണത്തെ തുടർന്ന് തെരഞ്ഞെടുപ്പ് മാറ്റിവച്ചിരിക്കുകയാണ്

നാളെ നടക്കുന്ന വോട്ടെണ്ണലിന്റെ ഭാഗമായി ആകാശവാണിയുടെ വാർത്താവിഭാഗം വാർത്താ പ്രക്ഷേപണത്തിന്റെ സമയക്രമത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്

ന്യൂസ് ഡസ്ക് ആകാശവാണി

ലണ്ടനിലെ വെസ്റ്റ്മിനിസ്റ്റർ കോടതിയാണ് മല്ല്യയുടെ വാദങ്ങൾ തള്ളി നാടുകടത്തിലിന് ഉത്തരവായത്

കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഇയാളെ സ്കോട്ലെന്റ്യാർഡ് പൊലീസ് അറസ്റ്റു ചെയ്തെങ്കിലും പിന്നീട് ജാമൃത്തിൽ വിട്ടിരുന്നു

റിമാൻഡ് കാലാവധി ്ഇ്ന്ന് അവസാനിച്ചതിനെ തുടർന്ന് ഇയാളെ ഡൽഹിയിലെ പ്രത്യേക സിബിഐ കോടതിയിൽ ഹാജരാക്കി അന്വേഷണവുമായി ഇയാൾ സഹകരിക്കുന്നില്ലെന്നും ഒമ്പത് ദിവസത്തേക്ക് റിമാൻഡ് നീട്ടണമെന്നും സിബിഐ കോടതിയിൽ ആവശ്യപ്പെട്ടു അതിനിടെ നേരത്തെ സമർപ്പിച്ച ജാമ്യാപേക്ഷ പിൻവലിച്ച് മിഷേൽ പുതിയ ദീർഘമായ ജാമ്യപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്

സെപ്തംബറിൽ കാലാവധി അവസാനിക്കാനിരിക്കെയാണ് രാജി പ്രമുഖ സാമ്പത്തിക വിദഗ്ധനായ ഡോ ഊർജിത് പട്ടേലിന്റെ സേവനങ്ങൾ റിസർവ്വ് ബാങ്കിന്റെ ഉറപ്പാക്കാൻ സഹായകരമായതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്വീറ്റ് ചെയ്തു ഊർജിത് പട്ടേലിന്റെ സേവനങ്ങളെ ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിയും അനുസ്മരിച്ചു

പോലീസിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് നാളെ തിരുവനന്തപുരം ജില്ലയിൽ ബിജെപി ഹർത്താലിന് ആഹാനം ചെയ്തിട്ടുണ്ട് അതേസമയം ശ്രീ എ എൻ രാധാകൃഷ്ണന്റെ ആരോഗ്യനില മോശമായതിനെ തുടർന്ന് അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി

എൻ രാധാകൃഷ്ണന്റെ നിരാഹാര സമരം ഇന്ന് എട്ടാംദിവത്തേയ്ക്ക് കടന്നിരുന്നു

ഇതോടെ പത്ത് വർഷത്തെ ഇന്ത്യയുടെ കാത്തിരിപ്പിനാണ് വിരാമമായത്

ഇത് ആദ്യമായിട്ടാണ് ഓസ്ട്രേലിയൻ മണ്ണിൽ ടെസ്റ്റ് പരമ്പയിലെ ആദ്യ മത്സരത്തിൽ തന്നെ ഇന്തൃ വിജയിക്കുന്നത്

ബി ജെ പി നേതാവ് ഗഗൻ ഭഗത് ആണ് ഹർജി സമർപ്പിച്ചത്

ശാസ്ത്രജ്ഞന്മാരുടെയും ഇന്ത്യൻ എഞ്ചിനീയർമാരുടെയും മറ്റൊരു ലോക്ട് റെക്കോർഡാണിതെന്ന് അദ്ദേഹം ട്യീറ്റ് ചെയ്തു

കർണാടകയിലെ ഉത്തര കന്നട ജില്ലയിലാണ് കൈഗ ആണവോർജ്ജ നിലയം സ്ഥാപിച്ചിരിക്കുന്നത്

മൂന്നു വിദ്യാർത്ഥിനികൾ സമർപ്പിച്ച പൊതു താൽപരൃ ഹർജിയിലാണ് കോടതിയുടെ ഉത്തരവ് ഇതുകൂടാതെ ഹസ്രത്ത് നിസാമുദ്ദീൻ ദർഗയുടെ ചുമതലയുള്ള ട്രസ്റ്റിനോട് ഹർജി വീണ്ടും പരിഗണിക്കുമ്പോൾ അഭിപ്രായം അറിയിക്കാനും ചീഫ് ജസ്റ്റിസ് രാജേന്ദ്ര മേനോൻ ജസ്റ്റിസ് വി

അദ്ദേഹം രാജിക്കത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അയച്ചതായി ഞങ്ങളുടെ ലേഖകൻ റിപ്പോർട് ചെയ്തു

വികസനയാത്രയിലെ പ്ര്യാന് ഇന്ധനമാണ് വിദ്യാഭ്യാസമെന്നും രാഷ്ട്രപതി അഭിപ്രായിര്ക്പ്പട്ടു ഉത്തർപ്രദേശിലെ ഗൊര്ഖ്പൂരിൽ മഹാറാണ പ്രതാപ് ശിക്ഷാ പരിഷത്ത് സംഘടിപ്പിച്ച പരിപാടിയിൽ സംബന്ധിക്കുകയായിരുന്നു അദ്ദേഹം